വെർച്ചൽ ഉച്ച്കോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രധാനമന്ത്രിയ്ക്കൊപ്പം അദ്ധ്യക്ഷത വഹിക്കും

പദ്ധതി ഏർപ്പെടുത്തുന്നത് രാജ്യത്തെ നിക്ഷേപ സൌഹൃദമാക്കുമെന്ന് പ്രധാീന്റമ്പ്രന്തി നരേന്ദ്ര മോദി

ഇന്ന് പുറപ്പെടുവിക്കും നാമനിർദ്ദേശ പത്രികകൾ ഇന്നുമുതൽ സമർപ്പിക്കാം

ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ സ്ഥിതിഗതി ഉച്ചകോടി വിലയിരുത്തും പരസ്പര ബന്ധം സമുദ്ര രംഗത്തെ സഹകരണം വ്യാപാരം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിലുള്ള പുരോഗതിയും ചർച്ച ചെയ്യും ഇടപാടുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ആസിയാൻ കർമ്മപദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കും കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക വീണ്ണ്ടുക്കലും സുപ്രധാന പ്രാദേശിക അന്താരാഷ്ട്ര സംഭവ വിക്ട്സ്സ്ങ്ങളും ഉച്ചകോടിയിൽ ചർച്ചയാകും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതമായ ഇടപെടലിനുള്ള അവീസരമാണ് ഉച്ചകോടി ഒരുക്കുന്നത്

ടെലികോം നെറ്റ് വർക്കിംഗ് ഉപകരണങ്ങൾ മരുന്ന് ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈൽ ഘടകങ്ങൾ തുണിത്തരങ്ങൾ ഭക്ഷ്യ ഉത്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്

പ്രധാന രംഗങ്ങളിൽ നിക്ഷേപം ആകർഷിക്കാനും മികച്ച സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനും കഴിയും കാര്യക്ഷമതയും കയറ്റുമതിയും വർദ്ധിക്കും ആഗോളവിതരണ ശൃംഖലയിൽ ഇന്ത്യ സുപ്രധാന കണ്ണിയായി മാറും ന്യൂസ് ഡെസ്ക് ആകാശവാണി

തന്റെ ചിന്തകളും പ്രാർത്ഥനയും ബഹ്റിൻ രാജാവിനും രാജകുടുംബത്തിനും ജന്മങ്ങൾക്കും ഒപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശ്ത്തിൽ പറഞ്ഞു

നിരവധി പൈതൃക സമുച്ചയങ്ങളും പഴയ കെട്ടിടങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ തുടങ്ങി ജനസാന്ദ്രത വളരെയധികമുള്ള ചേരികളുമുള്ള മുംബൈ പോലുള്ള നഗരത്തിന് ഈ റെയിൽപാത കൂടുതൽ സുരക്ഷയൊരുക്കും

റിപ്പബ്ലിക് ടി വി ചീഫ് എഡിറ്റർ അർണബ് ഗോസ്വാമിക്ക് ഇവർ ഫോൺ നൽകിയോ എന്ന് കണ്ടെത്താനും ജയിൽ അധികൃതർ അന്വേഷണം നടത്തുകയാണ് ഫോൺ അനുവദനീയമായതിലും കൂടുതൽ സമയം ഉപയോഗിച്ചത് കണ്ടെത്തിയതിനെ തുടർന്ന് അലിബാഗ് ജയിലിലെ കാറന്റൈയിൻ കേന്ദ്രത്തിൽ നിന്ന് നേരത്തെ അർണബ് ഗോസ്വാമിയെ തലോജ ജയിലിലേക്ക് മാറ്റിയിരുന്നു

ടി ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തു

പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റ്ഡിയിൽ വിട്ടു

അതേസമയം ഈ സാഹചര്യത്തിലും മറ്റ് രോഗങ്ങൾക്കെതിരായ നടപടികൾ പിന്നാക്കം പോകരുതെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ലോകാരോഗൃ സംഘടനയും ഇന്ത്യയിലെ ആരോഗൃ സംവിധാനവും തമ്മിലുള്ള ശക്തമായ സഹകരണം ടെഡ്രോസ് അഥാനം ഗബ്രിയേസ് ഊന്നിപ്പറഞ്ഞു

പരമ്പരാഗത മരുന്നുകൾ ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ചും ഇരുവരും സംസാരിച്ചു പരമ്പരാഗത മരുന്നുകൾ ഉപയോഗിക്കാനായി ഗവേഷണം പരിശീലനം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നുണ്ടെന്ന് ടെഡ്രോസ് അഥാനം വ്യക്തമാക്കി നാളെ ഇന്ത്യയിൽ ആയൂർവേദ ദിനം ആഘോഷിക്കുന്നത് പ്രധാനമന്ത്രി എടുത്തുകാട്ടി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന പ്രവർത്തനങ്ങളെയും ലോകാരോഗൃ സംഘടന ഡയറക്ടർ പ്രകീർത്തിച്ചു

ഇന്ന് മുതൽ സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാം

പ്രവേശന കവാടത്തിൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണം ആഭ്യന്തര വിനോദ സഞ്ചാരികൾ കോവിഡ്ജാഗ്രതാ പോർട്ടലിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം

എൽ

പ്രതിപക്ഷ കക്ഷിയായ യു

എസ്

കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ലോകം ശ്രിയിൽ ദിശയിലാണ് നീങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു